സന്ദേശത്തോടെ യോഗാദിനാചരണത്തിന് തുടക്കമായി യോഗാ ദിനം ഐകൃത്തിന്റേത് എന്നും കോവിഡ് കാലത്ത് യോഗ ശീലമാക്കണമെന്നും പ്രധാനമന്ത്രി

ഈ ദശകത്തിലെ ആദ്യ സൂര്യഗ്രഹണം ഇന്ന് കേരളത്തിൽ ഭാഗിക സൂര്യഗ്രഹണം കാണാം

പ്രധാനമന്ത്രി നരേന്ദ്ര മോദി യുടെ യോഗദിന സന്ദേശത്തോടെ ഈ വർഷത്തെ യോഗദിനാ ചരണത്തിന് തുടക്കമായി യോഗാ ദിനം ഐക്യത്തിന്റേതാ ണെന്നും കോവിഡ് കാലത്ത് യോഗ ശീലമാക്കണന്നും പ്രധാന മന്ത്രി യോഗ ദിന സന്ദേശത്തിൽ പറഞ്ഞു ശ്വസന വ്യവസ്ഥ ശക്തമാക്കാൻ യോഗ സഹായിക്കുമെന്നും ഇതിനായി പ്രാണാ യാമം ചെയ്യണമെന്നും അദ്ദേഹം പറഞ്ഞു

ഇതാദ്യമായാണ് ഇവിട്ടി ഇത്രയധികം കേസുകൾ ഒറ്റ ദിവസം റിപ്പോർട്ട് ചെയ്യുന്നിത്

അതേസമയം അവധിയിൽ പ്രവേശിച്ചിരിക്കുന്ന മുഴുവൻ ആരോഗ്യ പ്രവർത്ത കരും ജോലിയിൽ ഹാജരാകാൻ സർക്കാർ ഉത്തരവിറക്കി

ഡൽഹി ദൂരന്ത നിവാരണ അതോറിറ്റി അംഗങ്ങൾ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ മറ്റ് ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവരുമായി അദ്ദേഹം ഇന്നലെ യോഗം ചേർന്നു ഡൽഹി യിലെ സ്വകാരൃ ആശുപത്രികളിൽ കുറഞ്ഞ ചെലവിൽ ചികിത്സ ലഭ്യമാക്കുന്നത് സംബന്ധിച്ച ഉന്ന്ത്ത്യ് കമ്മിറ്റി ശുപാർശകൾ ഡൽഹി ദുരന്ത നിവാരണി അതോറിറ്റി അംഗീകരിച്ചതായി അദ്ദേഹം വ്യക്തമാക്കി

തിരുവനന്തപുരം കോർപ്പറേഷൻ ക്ടോട്ടിയം ജില്ലയിലെ ചിറക്കടവ് എറണാകുളം ജില്ലയിലെ വെങ്ങോല് എന്നിവയാണ് പുതിയ ഹോട്ട് സ്പോട്ടുകൾ പാലക്കാട് ജില്ലയില്ല നാല് പ്രദേശങ്ങളെ ഹോട്ട് സ്പോട്ടിൽ നിന്ന് ഒഴിവാക്കിം ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ കാലടി ജംഗ്ഷൻ ആറ്റുക്കാൽ ഐരാണിമുട്ടം മണക്കാട് ജംഗ്ഷൻ ചിറമുക്ക് കാലടി റോഡ് എന്നിവയാണ് കണ്ടയ്മെന്റ് സോണുകൾ

പ്രവേശന പരീക്ഷകൾ നടക്കുന്ന സാഹചര്യത്തിലാണ് നിയന്ത്രണങ്ങൾ ഒഴിവാ ക്കിയത്

ഇന്നലെ മാത്രം ആയിരത്തോളം പേരാണ് ഇവിടെ മരിച്ചത്

മെക്സിക്കോയിലും മരണസംഖ്യ ഉയരുന്നു

രോഗബാധിതരുടെ ഫ്ലിണ്ണത്തിൽ ഇന്ത്യ നാലാം സ്ഥാനത്താണ്

ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്ന് വലയ സൂര്യഗ്രഹണമാവും ദൃശ്യമാവുക

ഗ്രഹണപാത കടന്നുപോകുന്ന രാജസ്ഥാനിലെ അനൂപ്ഗഢ് സൂറത്ത്ഗഢ് എന്നിവിടങ്ങളിലും ഹരിയാനയിലെ സിർസ ജഖൽ കുരുക്ഷേത്ര യമുന നഗർ എന്നിവിടങ്ങളിലും ഉത്തരാഖണ്ഡിലെ ഡെറാഡൂൺ തപോവൻ ജോഷിമത് എന്നിവിടങ്ങളിലും സൂര്യഗ്രഹണം വ്യക്തമായി ദൃശ്യമാകും

സൂര്യനും ഭൂമിയ്ക്കുമിടയിൽ ചന്ദ്രൻ നേർരേഖയിൽ വരുമ്പോൾ സൂര്യപ്രകാശം ഭൂമിയിലെത്തുന്നത് തടയുകയും ചന്ദ്രന്റെ നിഴൽ ഭൂമിയിൽ പതിക്കുകയും ചെയ്യും നിഴൽ പതിക്കുന്ന പ്രദേശത്തുള്ളവർക്ക് സൂര്യൻ ദൃശ്യമല്ലാ താകുന്ന പ്രതിഭാസമാണ് സൂര്യഗ്രഹണം

നഗ്നനേത്രങ്ങൾ കൊണ്ട്ട്ട് കറുത്ത കണ്ണടകൾ ധരിച്ചോ എക്സ്റേ ഷീറ്റുകൾ ഉപ്പെയോഗിച്ചോ ഗ്രഹണം കാണാൻ ശ്രമിക്ക രുതെന്ന് കേന്ദ്ര ശാസ്ത്ര്ത് സാങ്കേതിക മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി സൂര്യന്റെ ദൃശ്യം ജല ഉപരിതലത്തിൽ നോക്കുന്നതും ദോഷകരമാണെന്ന് മന്ത്രാലയം അറിയിച്ചു

ഏഴ് വിമാനങ്ങളാണ് വന്ന് ചേരുക